ഝാർഖണ്ഡിൽ ജെ എം എം കോൺഗ്രസ് ആർ

ഡി സഖ്യം അധികാരത്തിലേക്ക്

മോട്ടോർ വാഹനങ്ങളിൽ ക്കെക്രോ ഡോട്ട് ഐഡന്റിഫയർ സ്ഥാപിക്കുന്നത് സംബൃഡിച്ച് കേന്ദ്രം വിജ്ഞാപനം പുറപ്പെടുവിച്ചു

എം എം കോൺഗ്രസ്സ് ആർ

ഡി സഖ്യം അധികാരത്തിലേക്ക്

എം കൂട്ടുമുന്നണിയിൽ ജെ എം

ജാർഖണ്ഡ് വികാസ് മോർച്ച മൂന്ന് സീറ്റും എ ജെ

യു രണ്ട് സീറ്റും ആർ

ഡി എൻ സി പി സി

ഐ എം എൽ എന്നീ കക്ഷികൾ ഓരോ സീറ്റ് വീതവും നേടി വിജയിച്ചവരിൽ രണ്ടു സ്വതന്ത്രരും ഉൾപ്പെടുന്നു കൂടുതൽ വിവരങ്ങളുമായി സുരേഷ്

മുഖ്യമന്ത്രിയായി നിർദ്ദേശിക്കപ്പെട്ട ജെ

വി

കോൺഗ്രസ്സ് സംസ്ഥാന അദ്ധ്യക്ഷൻ രാമേശ്ച്ർ ഒറാവോൺ ലോഹർദഗയിൽ നിന്നും എ

മന്ത്രിമാരായ ് രാജ് പലിവാർ ലോയിസ് മറാണ്ടി എന്നിവരും പരാജയപ്പെട്ടു മുഖ്യമന്ത്രി രഘുബർദാസ് ഗവർണർ ദ്രൌപതി മുർമുവിനെ കണ്ട് രാജി നൽകി കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ ഗവർണർ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു മഹാസഖ്യം ജനങ്ങളുടെ പ്രതീക്ഷകൾ സഫലമാക്കുമെന്ന് ഹേമന്ദ് സോറൻ പ്രതികരിച്ചു ഹേമന്ദ് സോറനെയും മഹാസഖ്യത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനമറിയിച്ചു

അഞ്ചുവർഷം ഭരിക്കാൻ ബിജെപിക്ക് അവസരം നൽകിയതിന് അദ്ദേഹം ജനങ്ങളെ നന്ദി അറിയിച്ചു സംസ്ഥാനത്തിന്റെ വികസനത്തിന് ബിജെപി പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു

ടി അടയ്ക്കലിന്റെ നടപടി ക്രമം ലളിതമാക്കുന്നതും ജി

ടി മന്ത്രിതല സമിതി ചർച്ച ചെയ്തു ബിഹാർ ഉപമുഖ്യമന്ത്രി സുശീൽ മോദി അദ്ധ്യക്ഷനായ ജി

ടി മന്ത്രിതല സമിതി ഇന്നലെ ബംഗളുരുവിലാണ് യോഗം ചേർന്നത്

സുശീൽ മോദി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

കുറേക്കൂടി ലളിതമായ ജി

സുശീൽ മോദി അറിയിച്ചു

പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക്ആരോഗ്യ സേവനം കൂടുതലായി എത്തിക്കുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും നവീന മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നതിനും ധാരണയായി

ഗ്രാമീണ മേഖലയിൽ പൊതുനിക്ഷേപം വർദ്ധിപ്പിക്കുന്നതും സമ്പദ്വ്യവസ്ഥയ്ക്ക് ഊർജ്ജമേകുന്നതും ചർച്ചയായി

നിയന്ത്രണ സംവിധാനത്തിലെ അവ്യക്തതയാണ് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന്റെ മന്ദതയ്ക്ക് കാരണമായതെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച നടത്തിയ പ്രസ്താവനയിൽ ശ്രീമതി ഗീതാ ഗോപിനാഥ് അഭിപ്രായപ്പെട്ടിരുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ജി

ടി എന്നും അവർ പറഞ്ഞു

പൊതു സമൂഹം ഏറെ പ്രതീക്ഷയോടെ കാണുന്ന പുതിയ സംവിധാനം നടപ്പിലാവുന്നതോടെ രാജ്യത്തോടുന്ന തീവണ്ടികളുടെ സുരക്ഷയും വേഗതയും വർധിപ്പിക്കാനാവുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു

തിരക്കേറിയ പാതകളായ ഡൽഹി മുംബൈ ഡൽഹി ഹൌറ മേഖലകളിലായിലിക്കും പുതിയ പദ്ധതി ആദ്യം നിലവിൽ വരിക

കഴിഞ്ഞ ജൂലായ് മാസ്ക് ഇത് സംബന്ധിച്ച് പുറപ്പെടുവിച്ച കരടിലെ അഭിപ്രായങ്ങളും ഭേദഗതിക്കൂടി കൂടി പരിഗണിച്ചാണ് പുതിയ ഉത്തരവ് മൈക്രോഡോട്ട് ഐഡന്റിഫയ്ർ വാഹനങ്ങളിൽ ഉറപ്പിക്കുന്നതോടെ വാഹനമോഷ്ട്രണ്ട് വലിയൊരളവിൽ തടയാനാകുമെന്ന് മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ പ്ഷരയുന്നു വ്യാജ യന്ത്രഭാഗങ്ങൾ തടയാനും പുതിയ സംവിധാനത്തിനാക്കും പ്രവാഹനങ്ങളിലും അവയുടെ യന്ത്രസാമഗ്രികളിലും സൂക്ഷ്മ തിരിച്ചറിയൽ സംവിധാനമായ മൈക്രോസ്കോപ്പിക് ഡോട്ടുകൾ സ്ഥാപിക്കലാണ് പുതിയ സംവിധാനം ഇതുവഴി വാഹനത്തേയും അതിന്റെ യന്ത്രഭാഗങ്ങളേയും ഒറ്റനോട്ടത്തിൽ തന്നെ തിരിച്ചറിയാനാകും

വിദൂരവും ദുർഘടവുമായ മേഖലകളെ ബന്ധിപ്പിക്കുന്നതിനായി ചെറു വിമാനത്താവളങ്ങളുമായി ബന്ധിപ്പിച്ചാണ് ഉഡാൻ ആരംഭിച്ചത്

സി സി സീറ്റുകൾ കൂടി വർദ്ധിപ്പിക്കാൻ രാജ്യരക്ഷാ മന്ത്രാലയം അനുമതി നൽകി പുതിയ ഉത്തരവിലൂടെ എൻ സി

സി സി യുടെ ദേശീയ ഡയറക്ടർ ജനറൽ ഓഫീസ് വിതരണം ചെയ്യും

ഈജിപ്തിലെ വ്യോമസേനാ പരിശീലനകേന്ദ്രങ്ങൾ സന്ദർശ്ശിക്കുന്ന എയർ മാർഷൽ ബദൌരിയ ഉന്നത ഉദ്യോഗസ്ഥരുമായി ആശ്ലിയ്പിനിമയം നടത്തും

വ്യോമസേനകൾ തമ്മിലുള്ള സഹകര്ണം ്വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന്ന നയതന്ത്ര ബന്ധം ശക്തമാക്കാനും സേനാ മേധാവിയുടെ സന്ദർശൻ സ്ഹായിക്കും

എസ് ജയശങ്കറും ഇറാൻ വിദേശകാര്യ മന്ത്രി ഡോ മുഹമ്മദ് ജവാദ് സറീഫും നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ തുറമുഖത്തിന് ഇറാൻ അഫ്ഗാനിസ്ഥാൻ മധ്യേഷ്യ യൂറോപ്പ് എന്നിവർക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള പ്രവേശന കവാടമായി വർത്തിക്കാനാകുമെന്ന് അഭിപ്രായപ്പെട്ടു അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കയറ്റുമതിക്ക് തുറമുഖം നൽകുന്ന സേവനത്തെ പ്രകീർത്തിച്ച രണ്ടുപേരും കൂടുതൽ വ്യാപാര സാധ്യതകൾക്ക് തുറമുഖം വേദിയാകുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു

ഇന്നലെ ആലപ്പുഴയിലും ചേന്നങ്കരിയിലെ വസതിയിലും നിരവധി പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു

മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ എന്നിവർ ഇന്ന് അന്തിമോപചാരം അർപ്പിക്കും

വെടിനിർത്തൽ കരാർ ലംഘനത്തിന്റെ മറവിൽ ഭീകരരെ അതിർത്തിയിലേക്ക് തള്ളിവിടാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്

ഡി